കിഴക്കൻ ലഡാക്കിൽ സംഘർഷ സാധൃത നിലനിൽക്കെ ഇന്ത്യ ചൈന പ്രതിരോധ മന്ത്രിമാർ കൂടിക്കാഴ്ച നടത്തി

കാക്കി യൂണിഫോമിന്റെ മാനുഷിക ്പുശം ജനങ്ങൾക്ക് അനുഭവപ്പെടും വിധമാകണം ക്ലാല്ലീസിന്റെ പ്രവർത്തനമെന്ന് പ്രധാനമന്ത്രിന്ദ്രേന്ദ്ര മോദി

അനിശ്ചിതത്വത്തിന് വിരാമമിട്ട് അർജന്റീനൻ ഇതിഹാസ താരം സ്പാനിഷ് ക്ലബ് ബാഴ്സലോണയിൽ തുടരുമെന്ന് ലയണൽ മെസ്സി

കിഴക്കൻ ലഡാക്കിലെ സംഘർഷ സാധ്യത ലഘൂകരിക്കുന്നത് സംബന്ധിച്ചായിരുന്നു ഇരു നേതാക്കളുടെയും ചർച്ചു

വോയ്സ് റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിൽ ഷാങ്ഹായ് കോ ഓപ്പറേഷൻ ഓർഗനൈസേഷൻ എസ്

യോഗത്തിനിടെയായിരുന്നു ഇരു നേതാക്കളുടെ കൂടിക്കാഴ്ച അതിർത്തിയിൽ കുറച്ച് കാലമായി നില്പനിൽക്കുന്ന സംഘർഷം ലഘൂകരിക്കുന്നത് സംബന്ധിച്ച് ഇരൂറ്റ്യരും ചർച്ച നടത്തി ചൈനീസ് പ്രതിരോധമന്ത്രിയുടെ ആഭ്യർത്ഥനയെ തുടർന്നാണ് കൂടിക്കാഴ്ചയ്ക്ക് വേദി ഒരുങ്ങിയത്ത് സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാൻ ആക്രനോസുകിൽ വെടിയണമെന്ന് നേരത്തെ ഉച്ച്കോടിയിൽ പ്രതിരോധമുന്തി രാ്ജ്നാഥ് സിംഗ് അഭിപ്രായപ്പെട്ടു

വിശ്വാസ്യത സഹകരണം അന്താരാഷ്ട്ര നിയമങ്ങളും ചട്ടങ്ങളും അനുസരിക്കൽ പരസ്പര താത്പരൃങ്ങൾ മാനിക്കൽ എന്നിവ സഹകരണത്തിന്റെ അടിസ്ഥാന ശിലകളാണെന്ന് ശ്രീ

പ്രവർത്തനം മയക്കുമരുന്ന് കടത്തൽ തടയൽ തുടങ്ങിയവയിലും അംഗരാഷ്ട്രങ്ങൾ തമ്മിൽ കൂടുതൽ സഹകരണം ശക്തിപ്പെടുത്തേണ്ടതുണ്ട് അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അനുസ്യതമായി ആഗോള സുരക്ഷ മാനദണ്ഡങ്ങൾ ക്രമപ്പെടുത്തുന്നതിന് ശ്രമങ്ങൾ വേണ്മെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

മേഖലയിലെ സൈനിക പിന്മാറ്റം ഉറപ്പാക്കണമെന്നും ചൈനയോട് ആവശ്യപ്പെട്ടതായി വിദേശകാര്യ വക്താവ് അനുരാഗ് ശ്രീവാസ്തവ ് ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു

പ്രശ്നങ്ങൾ സമാധാനപരമായി പരിഹരിക്കുന്നതിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും ശ്രീവാസ്തവ പറഞ്ഞു മേഖലയിലെ നിലവിലുള്ള അവസ്ഥ ഏകപക്ഷീയമായി മാറ്റം വരുത്തിയ ചൈനീസ് നടപടിയാണ് സംഘർഷ സാധ്യത സംജാതമാക്കിയത് മൂന്ന് പതിറ്റാണ്ടോളം നിലനിന്നിരുന്ന സമാധാന അന്തരീക്ഷമാണ് ചൈനീസ് നീക്കത്തിലൂടെ ഇല്ലാതായതെന്നും അനുരാഗ് ശ്രീവാസ്തവ ചൂണ്ടിക്കാട്ടി

യഥാർത്ഥ നിയന്ത്രണ രേഖയിലെ സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്താൻ വ്യാഴാഴ്ചയാണ് കരസേനാ മേധാവി ലേ യിലെത്തിയത് ദുർഘട സാഹചരൃങ്ങളിൽ വിനൃസിച്ചിരിക്കുന്ന സേനാംഗങ്ങളുമായും മുതിർന്ന ഉദ്യോഗസ്ഥന്മാരുമായും ദിദിന സന്ദർശനത്തിനിടെ കരസേന മേധാവി കൂടിക്കാഴ്ച നടത്തി ശീതകാലത്ത് അതിർത്തി മേഖലകളിലെ സേനാവിന്യാസം സംബന്ധിച്ചും മേഖലയിലെ സുരക്ഷ കർക്കശമാക്കുന്നതിനെ കുറിച്ചും പിന്നീട് നോർത്തേൻ കമാൻഡ് മേധാവിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി മേഖലയിലെ സേനാവിന്യാസം സംബന്ധിച്ച് ജനറൽ എം

നരവനെ സംതൃപ്തി പ്രകടിപ്പിച്ചു

ഹൈദരാബാദിലെ സർദാർ വല്ലഭ്ഭായ് പട്ടേൽ പൊലീസ് അക്കാദമിയിൽ നടന്ന ഐ

എസ് പ്രൊബേഷണർമാരുടെ ദീക്ഷന്ത് പരേഡിനെ വീഡിയോ കോൺഫറൻസ് വഴി അഭിസംബോധന യൂണിഫോമിന്റെ മാനുഷിക വശം ജനങ്ങൾക്ക് അനുഭവപ്പെടുന്ന രീതിയിലാകണം പൊലീസിന്റെ പ്രവർത്തനമെന്ന് പ്രധാന്മന്ത്രി പറഞ്ഞു പ്രൊബേഷണർമാരാണ് പൊലീസ് അക്കാദമിയിൽ രണ്ട് വർഷത്തെ പരിശീലനം പൂർത്തിയ്മാക്കിയത്

രാജ്യത്തെ ഖാരിഫ് വിളയിറക്കൽ വിസ്തൃതിയെ കോവിഡ് ബാധിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു വിത്തുകൾ കീടനാശിനികൾ രാസവളങ്ങൾ യന്ത്രങ്ങൾ സാമ്പത്തിക സഹായം എന്നിവ സർക്കാർ യഥാസമയം നൽകിയതാണ് വിസ്തൃതി കൂട്ടാൻ സഹായിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു

തോമർ വ്യക്തമാക്കി

മുൻ രാഷ്ട്രപതിയും വിദ്യാഭ്യാസ വിദഗ്ദ്ധനുമായ ഡോ

രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് അധ്യാപക ദിനമായി ആചരിക്കുന്നത്

വോയ്സ് ചിന്തകൻ വാഗ്മി തന്ത്രജ്ഞനായ അംബാസഡർ അധ്യാപക പ്രതിഭ തുടങ്ങി നിരവധി മേഖലകളിൽ നൈപുണ്യം തെളിയിച്ച വ്യക്തിയാണ് ഡോ

രാധാകൃഷ്ണൻ

ഇന്ത്യൻ തത്ത്വശാസ്ത്രം ആദർശാത്മകവീക്ഷണം കിഴക്കും പടിഞ്ഞാറും പൌരസ്തൃമതങ്ങളും പാശ്ചാതൃ ചിന്തയും എന്നിവ അവയിൽ പ്രധാനപ്പെട്ടവയാണ്

ഭാരതരത്നം ഉൾപ്പെടെയുള്ള അംഗീകാരങ്ങൾക്കും അദ്ദേഹം അർഹനായി ഭാരതത്തിലെ ആദ്യ വിദ്യാഭ്യാസ പരിഷ്കരണ കമ്മീഷൻ ചെയർമാനായി പ്രവർത്തിച്ച ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ ഇന്നും ഏറെ പ്രസക്തമാണ്

കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രമേശ് പൊഖ്രിയാൽ നിഷാങ്ക് സഹവിദ്യാഭ്യാസ മന്ത്രി സഞ്ജയ് ധോത്രേ എന്നിവർ പങ്കെടുക്കും

കൂടുതൽ വിദ്യാർത്ഥികളെ സ്കൂളുകളിലേക്ക് പ്രവേശിപ്പിക്കുക കുട്ടികളുടെ കൊഴിഞ്ഞു പോക്ക് കുറയ്ക്കുക വിദ്യാഭ്യാസം കൂടുതൽ മികച്ചതാക്കുക രാഷ്ട്ര നിർമ്മാണം ദേശീയ ഉത്ഗ്രഥനം എന്നിവയ്ക്കായി പ്രയത്നിച്ച അധ്യാപകർക്കാണ് അവാർഡുകൾ കേരളത്തിൽ നിന്നുള്ള രണ്ട് പേരും അവാർഡിന് അർഹരായി

രണ്ട് മാസത്തിനിടെ കോവിഡ് മുക്തി നേടുന്നവരുടെ എണ്ണം നാല് മടങ്ങായതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി കോവിഡ് മരണനിരക്കിലും കുറവുണ്ടായതായി മന്ത്രാലയം അറിയിച്ചു

മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മദർ തെരേസക്ക് സ്മരണാഞ്ജലി അർപ്പിക്കും

ബാഴ്സലോണയിൽ നിന്നും പോകില്ലെന്ന് അർജന്റീനൻ ഫുട്ബോൾ താരം ലയണൽ മെസ്സി താരം സ്പാനിഷ് ക്ലബ് ബാഴ്സലോണ വിടുമെന്ന അഭ്യൂഹങ്ങൾക്ക് ഒടുവിലാണ് മെസ്സിയുടെ പ്രതികരണം

എന്നാൽ ക്സബ് മാനേജ്മെന്റിനെതിരെയും ക്ലബ് പ്രസിഡന്റിനെതിരെയും ഉള്ള നീരസവും മെസ്സി അഭിമുഖത്തിൽ തുറന്ന് പറഞ്ഞു